മോദി ഇന്ന് സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തും

പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പു കമ്മീഷൻ

ശബരിമല യുവതി പ്രവേശന വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവ്വകക്ഷിയോഗം

അയർലന്റിനെതിരെ

വൈകിട്ടോടെ തമിഴ്നാട് തീരം തൊടും കനത്ത ജാഗ്രത

സിംഗപ്പൂരിൽ ആസിയാൻ സാമ്പത്തിക ഉച്ചകോടിക്കിടെ ഇന്ന് രാവിലെയാണ് അനൌദ്യോഗിക ഉച്ചകോടി ആദ്യ സിംഗപ്പൂർ ഇന്ത്യ ഹാക്കത്തോൺ മത്സരവിജയികൾക്ക് പ്രധാനമന്ത്രി സമ്മാനങ്ങൾ നൽകും

ദക്ഷിണ കിഴക്കൻ ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളുടെ വാർഷിക ഉച്ചകോടിയാണിത്

ഇന്നലെ സിംഗപ്പൂരീൽ ആസിയാൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ

എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന തരത്തിൽ കരാറിലെ വ്യവസ്ഥകൾ ആധുനീകരിക്കണം പരസ്പര വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാകണമെന്നും ശ്രീ

നേരത്തെ അംഗീകരിച്ച കരാറുകളിലെ വ്യവസ്ഥകൾ അതിവേഗത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതെന്ന് ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി സൂധാൻശു പാണ്ഡ് വാർത്താ ലേഖകരോട് വിശദീകരിച്ചു സിംഗപ്പൂർ ഓസ്ട്രലിയ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരുമായും ശ്രീ

നേരത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസുമായും കൂടിക്കാഴ്ച നടത്തി സാമ്പത്തികവും നയതന്ത്രപരവുമായ മേഖലകളിലും അന്താരാഷ്ട്രതലത്തിലും ഇന്ത്യ വളരുകയാണെന്നും മൈക്ക് പെൻസ് നിരീക്ഷിച്ചു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ പരസ്പരസഹകരണം വർദ്ധിപ്പിക്കാനാണ് പ്രത്യേക ഉച്ചകോടി ചേരുന്നത്

ഭോപ്പാലിൽ ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം സ്വതന്ത്രവും നീതിയുക്കുതവുമായ തിരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രന്ടപടിയെന്നും അദ്ദേഹം പറഞ്ഞു

റാവത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമൂര്യ സുനിൽ അറോറയും അഗോറ്റ് ലാവാസയും

ഭൂരിപക്ഷം ആയിരം വോട്ടുകളിൽ കുറവാണ്ണ്ട്കിൽ അത്തരം ബൂത്തുകളിലെ വോട്ട് വീണ്ടും എണ്ണമെന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു എല്ലാ പോളിംഗ് ബൂത്തുകളിലും സിസിറ്റിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചില കക്ഷികൾ ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു

ഗവർണ്ണർ സത്യപാൽ മാലിക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അഡ്മിനിസ്ട്രേറ്റീവ് യോഗത്തിലാണ് തീരുമാനം ന്യൂഡൽഹി നോയ്ഡ ഛണ്ഡിഗഡ് അലിഗർ ഭോപ്പാൽ പൂനെ ഹൈദ്രബാദ് ബംങ്കളുരു ചെന്നൈ ജയ്പൂർ എന്നീ നഗരങ്ങളിലായിരിക്കും ലെയ്സൻ ഓഫീസർമാരെ നിയമിക്കുകയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങളു മായി ജമ്മുകാശ്മീരിലെ കുട്ടികളെ പൊരുത്തപ്പെടുത്തുന്നതിന് ലെയ്സൻ ഓഫീസർമാരുടെ സേവനം പ്രയോജനം ചെയ്യും ഇതിനായി ടെലിഫോൺ ഇന്റർനെറ്റ് എന്നിവ അടക്കം അടിസ്ഥാന സൌകര്യങ്ങളുള്ള താത്ക്കാലിക ഓഫീസുകൾ ഓരോ പ്രദേശത്തും സജ്ജമാക്കും ജമ്മുകാശ്മീരിലെ ഇരുപതിനായിത്തോളെ വിദ്യാർത്ഥികളാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളുമായി പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്

സമസ്തിപ്പൂറിലെ പൂസയിൽ സ്ഥിതി ്ചെയ്യുന്ന ഡോ രാജേന്ദ്ര പ്രസാദ് കേന്ദ്ര കാർഷിക സർവ്വക്കലാർ ാലയുടെ പ്രഥമ ബിരുദദാന സമ്മേളനത്തെ അദ്ദേഹം അഭീസംബോധന ചെയ്യും പാറ്റ്ന എൻ ഐ

രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബസ്പ്ച്ച് സംസ്ഥാനത്ത് ശക്തമായ സുരക്ഷാക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്

ന്യൂഡൽഹിയിൽ ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ പ്രത്യക്ഷ നികുതി ബോർഡിന്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്തശേഷം വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നോട്ടു നിരോധനം രാജ്യത്ത് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നത് വർദ്ധിക്കാൻ കാരണമായെന്നും ശ്രീ

വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വൃക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി വൈകിട്ട് തന്ത്രികുടുംബം പന്തളം കൊട്ടാരം പ്രതിനിധികൾ എന്നൂട്ടിരുമായും കൂടിക്കാഴ്ച നടത്തും

കേരളത്തിലും മഴക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

കൂടല്ലൂർ പാമ്പൻ നാഗപട്ടണം മേഖലകളിലൂടെ ചുഴലിക്കാറ്റ് കടന്നുപോകും

തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും സാമാന്യം മഴക്കും സാധ്യതയുണ്ട് തിരുവാരൂർ തഞ്ചാവൂർ പുതുക്കോട്ടൈ തൂത്തുക്കൂടി രാമനാഥപുരം ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കും

ഇന്ന് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും നാളെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആന്ധ്രപ്രദേശിലെ റായലസീമ മേഖലകളിലും മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ് സ്ട്രീക്ഷണ കേന്ദ്രത്തിന്റെ ന്യൂസ് ഡെസ്ക് ആക്ടാശവാണി

ആദ്യ രണ്ട് മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ ജയം ഉറപ്പാക്കാനായാൽ സെമി ഫൈനലിൽ കടക്കാം മത്സരം തോറ്റാൽ അയർലന്റ് ലോകകപ്പിൽ നിന്ന് പുറത്താകും

ഗ്രൂപ്പ് ബിയിൽ രണ്ട് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

ചരിത്രനേട്ടമായ ആറാം സ്വർണ്ണത്തിനായി എം

അതേസമയം സൈന നെഹ്വാൾ ഒന്നാം റൌണ്ടിൽ രണ്ടാം സീഡും ജപ്പാൻ താരവുമായ അകാനെ യമഗുചിയോട് പരാജയപ്പെട്ടു